പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാന മൂഖ്യമന്ത്രിമാരുമായി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തും

യാത്രാ ട്രെയിനുകൾ ്ട്രിനാളെ മുതൽ ഭാഗികമായി പുനരാരംഭിക്കും ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേയ്ക്കും സർവ്വീസ്

എസ് മഗർ മാലിദ്വീപിൽ നിന്ന് കൊച്ചിയിലേയ്ക്ക് യാത്ര തിരിച്ചു

കേരളത്തിൽ ഹോം ക്വാറന്റയിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി

സാങ്കേതിക വിദ്യ സാമ്പത്തിക ഉന്നമനത്തിന് എന്നതാണ് ഈ വർഷത്തെ ആശയം

കോവിഡ് പ്രതിരോധ നടപടികളും ലോക്ഡ്രാണിൽ ഇളവുകൾ വരുത്തുന്നത് സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്യും സാമ്പത്തിക പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും യോഗത്തിൽ ചർച്ചയായേക്കും അതിഥി തൊഴിലാളികളുടെ യാത്ര ഹോട്ട്സ്പോട്ടുകളിലെ കൊറോണ നിയന്ത്രണ നടപടികൾ തുടങ്ങിയവയും ചർച്ചാ വിഷയമാകും

ചിക്കാഗോ മനില ലണ്ടൻ ദുബായ് അബുദാബി എന്നിവിടങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ എത്തുന്നത് എയർ ഇന്ത്യയും അനുബന്ധ കമ്പനിയായ എയർ ഇന്ത്യാ എക്സ്പ്രസുമാണ് സർവ്വീസ് നടത്തുന്നത്

നാളെ മുതൽ ഘട്ടംഘട്ടമായാണ് പ്രത്യേക സർവ്വീസ് തുടങ്ങുന്നത്

ദിബ്രുഗഡ് അഗർത്തല സെക്കന്തരാബാദ് ബംഗളൂരു ചെന്നൈ ഹൌറ ബിലാസ്പൂർ പറ്റ്ന റാഞ്ചി ഭുവനേശ്വർ മഡ്ഗാവ് ന മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് ജമ്മു താവി എന്നിവിടങ്ങളിലേയ്ക്കാണ് മറ്റ് സർവ്വീസുകൾ

ആർ സി ടി

റെയിൽവേ സ്റ്റേഷനുകളിലെ ബുക്കിംഗ് കൌണ്ടറുകൾ പ്രവർത്തിക്കില്ല

ലോക്ഡൌണിനെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ കുടുങ്ങിയ തൊഴിലാളികൾ വിനോദ സഞ്ചാരികൾ തീർത്ഥാടകർ വിദ്യാർത്ഥികൾ എന്നിവരെ നാട്ടിലെത്താനാണ് ശ്രമിക് ട്രയിനുകൾ ആരംഭിച്ചത്

മാലിദ്വീപിൽ നിന്നുള്ള രണ്ടാമത്തെ കപ്പലാണിത്

ഭക്ഷണവും ശുചിമുറിയും ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ കപ്പലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രത്യേക സജ്ജീകരണങ്ങളാണ് സാമൂഹിക അകല മാനദണ്ഡങ്ങൾ പാലിച്ചാണ് യാത്രക്കാരെ കപ്പലിൽ കയറ്റിയത്

എസ് ജലാശ്വ ഇന്നലെ കൊച്ചി തുറമുഖത്ത് എത്തിയിരുന്നു

യാത്രക്കാരിൽ രണ്ടു കുട്ടികളുമുണ്ട്

വിവിധ പരീക്ഷണങ്ങളിൽ കിറ്റ് കൃത്യത ഉറപ്പാക്കിയിട്ടുണ്ട്

ഇതര സംസ്ഥാനത്തുനിന്നും മടങ്ങിയെത്തുന്ന എല്ലാവരെയും വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗലക്ഷണമുള്ളവരെ തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കുമായി കോവിഡ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതാണ്

സി

ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ സമ്പദ്വ്യവസ്ഥയുടെ പുനരുത്ഥാനം എന്ന വിഷയത്തിന് പ്രാമുഖ്യം നൽകിയാണ് ഈ വർഷത്തെ ആഘോഷം ശാസ്ത്രജ്ഞർ സാങ്കേതിക വിദഗ്ദ്ധർ നയതന്ത്ര പ്രതിനിധികൾ ഗവേഷകർ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ദിനാഘോഷങ്ങളിൽ പങ്കാളികളാവും